ത സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഗവൺമെന്റ് ഓൺലൈൻ പഠന സൌകര്യം ഉറപ്പാക്കും ത സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ മതനേതാക്കളുമായി രാവിലെ മുഖ്യമന്ത്രി ചർച്ച നടത്തും ത അന്തർ ജില്ലാ ജല ഗതാഗതം സംസ്ഥാനത്ത് പുനഃരാരംഭിച്ചു

വാർത്തകൾ വിശദമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളെ കേരളത്തിലെത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നതിന് സംസ്ഥാനം തയാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ഇതുവരെ ആവശ്യപ്പെട്ട എല്ലാ വിമാനങ്ങൾക്കും അനുമതി നൽകി

ഇത്തരം വിമാനങ്ങൾക്ക് തുടർന്നും അനുമതി നൽകും ഇത്തരം വിമാനങ്ങളിൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും വന്ദേഭാരത് ദൌത്യത്തിൽ ഇൌടാക്കുന്ന ടിക്കറ്റ് നിരക്ക് ഇൌടാക്കണമെന്നും നിർദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ കമ്പനികൾക്കും വിമാന സർവ്വീസിന് അനുമതി നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു

ഇന്ന് ദോഹയിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് പ്രവാസികളെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കൊണ്ടുവരുന്നുണ്ട് രുമ കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ ദുബായ് അബുദാബി ദമാം എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി വിമാനങ്ങളെത്തി

കോട്ടയം ജില്ലയിൽ എട്ട് പേർക്കും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഏഴു പേർക്ക് വീതവും പാലക്കാട് കൊല്ലം എറണാകുളം ജില്ലകളിൽ അഞ്ചു പേർക്ക് വീതവും തൃശൂരിൽ നാലു പേർക്കും കാസർകോട്ട് മൂന്ന് പേരിലും പുതുതായി രോഗം കണ്ടെത്തി പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ രണ്ട് പേർക്ക് വീതമാണ് രോഗം ബാധിച്ചത്

അഞ്ച് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത് അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു

ദേദ സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികൾക്കും ഗവൺമെന്റ് ഓൺലൈൻ പഠന സൌകര്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വിയോ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും ക്ലാസുകൾ നഷ്ടപ്പെടില്ല

കാസർകോട് വെള്ളരിക്കുണ്ട് സ്വദേശിനിയായ രക്ഷിതാവാണ് ഹർജി നൽകിയത് പ്രാദേശിക കേന്ദ്രങ്ങളിൽ ഉൾപ്പടെ ഓൺലൈൻ ക്ലാസുകൾക്ക് സൌകര്യമൊരുക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഹർജി രമേ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി തീരമേഖലയിൽ നൂറ് ഓൺലൈൻ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ പി

ഇതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ മത്സ്യഫെഡും സംഘങ്ങളും ചേർന്ന് സജ്ജമാക്കും

നാല് കേന്ദ്രങ്ങളിലായി ഇവർക്ക് ക്ലാസുകൾ ആരംഭിച്ചു രുമ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ മതനേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ചർച്ച നടത്തും വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ചർച്ച ആരാധനാലയങ്ങൾ തുറന്നാലും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പ്രാർത്ഥനയ്ക്ക് അനുമതി രുമ സംസ്ഥാനത്ത് അന്തർ ജില്ലാ ജലഗതാഗതം പുനരാരംഭിച്ചു പുലർച്ചെ പൊതുഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ ട്രാൻസ്പോർട്ടിന്റെ കീഴിലെ യാത്രാ ബോട്ടുകളാണ് സർവീസ് പുനരാരംഭിച്ചത് മുഴുവൻ സീറ്റിലും ആളുകളെ ഇരുത്തി സർവീസ് നടത്തും നിന്ന് യാത്ര അനുവദിക്കില്ല

വർധിപ്പിച്ച യാത്രാക്കൂലി കുറച്ച് പഴയ നിരക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം മൂന്നാം ഘട്ട ലോക്ഡൌൺ കാലത്ത് അനുവദിച്ച കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ഇനി ഉണ്ടാവില്ല രുഭ കണ്ണൂരിൽ നിന്ന് തിരുവന്തപുരത്തേക്ക് ജനശതാബ്ദി എക്സ്പ്രസ് രാവിലെ സർവ്വീസ് ആരംഭിച്ചു സാങ്കേതിക കാരണങ്ങൾമൂലം കഴിഞ്ഞ രണ്ട് ദിവസം ഈ ട്രെയിൻ കോഴിക്കോട് നിന്നായിരുന്നു പുറപ്പെട്ടിരുന്നത് രുദ കണ്ണൂരിൽ നിന്ന് ഇന്നലെ മൂവ്വായിരത്തിലേറെ അതിഥി തൊഴിലാളികളെ ശ്രമിക് എക്സ്പ്രസിൽ നാടുകളിലേക്ക് തിരിച്ചയച്ചു

ഇവർക്കൊപ്പം നാല് കുട്ടികളുമുണ്ട്

രുമ പാലക്കാട് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഫോടക വസ്തു കടിച്ച് ആന ചരിഞ്ഞ സംഭവത്തിൽ പ്രാഥമികാന്വേഷണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പൊലീസിന് നിർദേശം നൽകിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിന് കോഴിക്കോട്ട് നിന്ന് വന്യജീവി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് അയച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു രേര ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ബോർഡ് ഇന്ന് വെബിനാർ സംഘടിപ്പിക്കും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിലാണ് വെബിനാർ

നാളെ പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങി ജൂലൈയിലെ വനമഹോത്സവം വരെ കാലയളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശസ്ഥാപനങ്ങൾ ഗവണ്മെന്റ് ഗവൺമെന്റിതര സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്ക് തൈകൾ സൌജന്യമായി നൽകും

ദേദ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് ആവശ്യപ്പെട്ടു വീടും നാടും സ്വയംപര്യാപ്തമാക്കുന്നത് കോവിഡ് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു